ഘട്ടത്തിൽ

ശ്രമം വേണമെന്ന് മുഖ്യമിന്തി മൂന്നാം മുറ സ്വീകരിച്ചാൽ ശക്തമായ നടപടിയെന്നും പിണറായി വിജയൻ

കൊച്ചി മെട്രോ സർവ്വീസ് നാളെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും ഓണത്തിന്റെ വരവറിയിച്ച് ഇന്ന് അത്തം

തൃപ്പുണിത്തുറയിൽ അത്തച്ചമയത്തിന് വർണ്ണാഭമായ തുടക്കം

വാർഡുകളിൽ നാളെ ഉപതെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ ബുധനാഴ്ച

ദൌത്യത്തിലെ ഏറ്റവും സുപ്രധാന ഘട്ടത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് ഓർബിറ്ററും ലാൻഡർ വിക്രമും വേർപെടും

എസ് ആർ

ചന്ദ്രനെ ചുറ്റുന്ന ഓർബിറ്ററും ചന്ദ്രനിൽ ഇറങ്ങുന്ന ലാൻഡറും എന്ന രീതിയിലാണ് പേടകം വേർപെടുക

ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിലെ മാൻസിനസ് സി സിംപ്തിയസ് എൻ ഗർത്തങ്ങളുടെ ഇടയിലാണ് വിക്രം ലാൻഡർ ഇറങ്ങുക

എൽ വി

ജയപ്രകാശ് ആകാശവാണിയോട് പറഞ്ഞു

കണ്ണൂരിൽ കേരള പോലീസ് ഓഫീസേഴ്സ് അസ്മോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മൂന്നാം മുറ ഒരു കാരണവശാലും അനുവദിക്കില്ല ഒറ്റപ്പെട്ട ന്നിയമ ലംഘനങ്ങൾ പോലും ഗവൺമെന്റ് ഗൌരവമായാണ് കാണുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സംസ്ഥാനത്തെ പോലീസ് നേടിയെടുത്ത മികവ് നിലനിർത്താനുള്ള ശ്രമം വേണം പോലീസ് എപ്പോഴും ജനസൌഹൃദമായിരിക്കണം

മതേതരത്വത്തിനും തീവ്രവാദത്തിനുമെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്നും ശ്രീ പിണറായി വിജയൻ വ്യക്തമാക്കി

പരിധിയിലായിരിക്കും ഓരോ ബി എൽ

കോഴിക്കോട് കുന്ദമംഗലം കുടുംബാരോഗ്യകേന്ദ്രം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

കൊച്ചി മെട്രോയുടെ ്ക്കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ ഹാൻഡ്ലിങ് ചാർജ് വഹിക്കുന്ന ശ്രീ രോഹിത് ആകാശവാണിയോട്

ഇവരെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടു വിജിലൻസ് നൽകിയ അപേക്ഷയും ഇന്ന് തന്നെയാണ് പരിഗണിക്കുന്നത് മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയാണ് ഹർഡികൾ പരിഗണിക്കുക

സ്ഥാനാർത്ഥിയെ ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് പി

ഡി എഫ് സ്ഥാനാർത്ഥിയായി കേരളാ കോൺഗ്രസ് എമ്മിലെ ജോസ് ടോമിനെ പ്രഖ്യാപിച്ചെങ്കിലും ചിഹ്നം സംബന്ധിച്ച തർക്കത്തിൽ തീരുമാനമായില്ല

ചിഹ്നത്തിന്റെ കാര്യത്തിൽ ഉടനെ തീരുമാനമാകുമെന്ന് യുഡിഎഫ് നേതാക്കൾ വിശദീകരിച്ചു അതിനിടെ നേരത്തെ നാമനിർദ്ദേശ പത്രിക നൽകിയ എൽ ഡി എഫ് സ്ഥാനാർത്ഥി മാണി സി കാപ്പൻ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമായി

ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായതായി സംസ്ഥാന തിര ഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു

തൃപ്പുണിത്തുറയിലെ ചരിത്രപ്രസിദ്ധമായ അത്തിച്ചുമയ ഘോഷയാത്രയ്ക്ക് തുടക്കമായി രാവിലെ മന്ത്രി എ കെ ബാലൻ ആഘോഷ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തു

പ്രകൃതിദുരന്തം ഉണ്ടായെങ്കിലും ഇത്തവണ ഓണാഘോഷത്തിന് പൊലിമ കുറയില്ലെന്ന് മന്ത്രി എ

അഞ്ച് ലക്ഷത്തിലധികം പേർക്ക് ഇത്തവണ ഓണക്കിറ്റ് നൽകും

മൂന്നുമാസത്തെ സാമൂഹ്യക്ഷേമ പെൻഷനുകൾ അക്കൌണ്ടിലേക്ക് ഉടൻ കൈമാറും

ലഹരിവസ്തുക്കൾ ഇൻഡ്രോ ഓണക്കാലത്ത് തമിഴ്നാട്ടിൽ നിന്ന് ലഹരിവസ്തുക്കൾ കേരളത്തിലെത്താൻ സാധ്യതയുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിനെ തുടർന്ന് ഇടുക്കിയിലെ അതിർത്തി ചെക്ക് പോസ്റ്റിൽ പരിശോധന ശക്തമാക്കുന്നു

എസ് ഓപ്പണിൽ നിന്ന് ഒന്നാം സീഡും നിലവിലെ ചാമ്പ്യനുമായ നൊവാക് ജോക്കോവിച്ച് പരിക്കേറ്റ് പിന്മാറി നാലാം റൌണ്ടിൽ സ്റ്റാൻ വാവ്റിങ്കക്കെതിരായ മത്സരത്തിനിടെയാണ് പരിക്ക് മൂലം താരം പിന്മാറിയത്